അതിർത്തിയിലെ തൽസ്ട്രഥിതി മാറ്റാൻ മാറ്റാൻ ചൈന ഏകപക്ഷീയമായി ശ്രമിച്ചതാ്ണ് സംഘർഷകാരണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്പർമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ട്രപ്പതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ വക്താവ്

നരേന്ദ്രമോദി ചർച്ച ചെയ്യും

ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഘർഷമുണ്ടായത് ഒരു കേണലടക്കം മൂന്നു സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇന്നലെ വൈകിട്ടോടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു

സംഘർഷത്തിനു പിന്നാലെ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇരുരാജ്യത്തെയും സൈനികർ ഗാൽവാൻ മേഖലയിൽ നിന്നും പിൻമാറിയതായി കരസേന പ്രസ്താവനയിൽ അറിയിച്ചു

ഇരുഭാഗത്തുമുണ്ടായ ആൾനാൾം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നും പൂർവിദേശകാര്യവക്താവ് പറഞ്ഞു

അതിർത്തിയിൽ ശാന്തിയും സമാധാന്ട്പും നിലനിൽക്കണമെന്നതിലും ഭിന്നതകൾ ചർച്ചയില്ല് ട്ടെ പരിഹരിക്കണമെന്നതിലും ഇന്തൃക്ക് ഉറച്ച ബോധമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് അനുരാഗ് പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ ലഡാക്കിൽ അതിർത്തിയിലെ സംഘർഷാവസ്ഥയിൽ അയവു വരുത്താൻ ഇരു രാജ്യങ്ങളും സൈനിക നയതന്ത്ര ചർച്ചകളിലൂടെ ശ്രമിക്കുകയായിരുന്നു ഈ മാസം ആറാം തീയതി നടത്തിയ സൈനികതല ചർച്ച ശുഭസൂചകമായിരുന്നുവെന്നും അതിനിടയിലായിരുന്നു ഗാൽവാൻവാലിയിലെ നിയന്ത്രണ രേഖ മാനിക്കാതെ ചൈനീസ് സേന നീക്കം നടത്തിയെന്നും അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

പ്രതിരോധ പ്രവർത്തന്ങളിലെ ചെറിയ പിഴവുകൾ പോലും വലിയ പ്രത്യാഖ്യാതം ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമയോചിതമായി സ്വീകരിച്ച തീരുമാനങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറെ സഹായിച്ചതായും നാം നടപ്പാക്കിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകം ചർച്ചു ചെയ്ത് തുടങ്ങിയതായും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന ആറാമത്തെ കൂടികാഴ്ചയാണ് ഇത്

സി എം

ടി പിസിആർ ടെസ്റ്റിനൊപ്പം റാപ്പിഡ് ആന്റിജൻ പരിശോധന കിറ്റുകൾ കൂടി ഉപയോഗിക്കാനും ഐസിഎംആർ അനുമതി നല്കിയിട്ടുണ്ട്

ഗുജറാത്തിലും കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇവിടെ ചികിത്സയിലുള്ളത്

വിശദാംശങ്ങളുമായി തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ആകാശവാണി വാർത്താവിഭാഗം മേധാവി ഡോ

അഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

രണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥര്യ തട്ടിക്കൊണ്ടു പോയി ഉപദ്രവിച്ചതിൽ ഇന്ത്യ പ്രതിഷേർട്ടു അറിയിച്ചു